ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സംസ്ഥാനത്തും കോൺഗ്രസുമായി ന് ാക്കില്ലെന്ന് ബി

വാസയോഗൃമല്ലാത്ത ദ്വീപിലേക്ക് റോഹിംഗൃൻ അഭയാർത്ഥികളെ മാറ്റിപാർപ്പിക്കുന്നതിനെതിരെ ബംഗ്ലാദേശിന് ഐകൃരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്

വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കെല്ലാം വോട്ട് ചെയ്യാനാകും ദേശീയ പൌരത്വ പട്ടികയുടെ അന്തിമ കരട്പട്ടികയിൽ പേരുൾപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള ചു അവകാശത്തെ ബാധിക്കില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു

എ ഗവൺമെന്റ് നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കു കീഴിൽ രാജ്യം സുരക്ഷിതമാണെന്ന് മുതിർന്ന ബിജെപി നേതാവും ധനമന്ത്രിയുമായ അരുൺ ജെയ്റ്റ്ലി ഫേസ് ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു ഭീകരപ്രവർത്തനങ്ങളുടെ ഉറവിടം ആക്രമിക്കുക എന്ന ഇന്ത്യയുടെ നയത്തിന്റെ ഭാഗമായാണ് സർജിക്കൽ സ്ട്രൈക്കും വ്യോമാക്രമണവുമെന്നും അദ്ദേഹം പോസ്റ്റ് ചെയ്തു ഭീകരപ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്ന നടപടിയു ായാൽ അതിന് വലിയ വില കൊടുക്കേ ിവരുമെന്ന് പാകിസ്ഥാന് ഇപ്പോൾ മനസ്സിലായെന്ന് അദ്ദേഹം കുറിച്ചു ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചതിനെ ലോകരാജ്യങ്ങൾ സ്വാഗതം ചെയ്തിട്ടു ഇക്കാര്യത്തിൽ പരമ്പരാഗത സുഹൃത്ത് രാജ്യങ്ങൾപോലും പാകിസ്ഥാന് നിന്ന് ഒപ്പം പ്രതിരോധിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു

പുൽവാമ ഭീകരാക്രമണത്തിൽ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയ കോൺഗ്രസ് ബലാകോട്ട് ആക്രമണത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതായും ശ്രീ ജെയ്റ്റ്ലി ഫേസ് ബുക്ക് പോസ്റ്റിലൂടെ കുറ്റപ്പെടുത്തി

പിയും സമാജ്വാദി പാർട്ടിയും തമ്മിലുള്ള സഖ്യം ആത്മാർത്ഥതയും പ്ർസ്പര ബഹുമാനത്തോടു കൂടിയുള്ളതുമാണെന്ന് യോഗത്തിന് ശേഷം ബിഎസ്

സാമൂഹ്യമാറ്റം കൊ ുവരുന്നതിനും ബിജെപിയെ പരാജയപ്പെടുത്താനും കഴിയുന്നതാണ് സഖ്യം

വരുന്ന ലോക്സഭ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും അദ്ദേഹം വൃക്തമാക്കി

സഖ്യ വിഷയത്തിൽ തന്റെ പാർട്ടി കോൺഗ്രസുമായി ചർച്ച നടത്തുന്നില്ലെന്നും ശ്രീ കേജ്രിവാൾ വ്യക്തമാക്കി

തൃണമൂൽ കോൺഗ്രസ് പ്രസിഡന്റും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമത ബാനർജിയാണ് കൊൽക്കത്തയിൽ ഇന്ന് വൈകുന്നേരം സ്ഥാനാത്ഥികളെ പ്രഖ്യാപിച്ചത്

പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സുബ്രത ബഷി അഭിന്നേത്രി സന്ധ്യ റോയി പ്രൊഫസർ സുഗത ബസു എന്നിവരെയാണ് ഒഴിവാക്കിയത്

നിലവിൽ പ്രവർത്തിക്കുന്ന പാർട്ടി വിട്ട് മറ്റ് പാർട്ടികളിൽ ചേക്കേറുന്നവരും കുറവല്ല കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

വല്ലഭ് ധാരാവിയ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ബിജെപിയിൽ ചേർന്നു സംസ്ഥാന ബിജെപി അധ്യക്ഷൻ ജിതുവഗാനിയുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ബിജെപിയിൽ അംഗത്വം സ്വീകരിച്ചത് നിയമസഭാംഗത്വം രാജിവച്ച്കൊ ുള്ള കത്ത് കഴിഞ്ഞ ദിവസം ശ്രീ വല്പഭ് ധാരാവിയ ഗുജറാത്ത് നിയമസഭാ സ്പീക്കർക്ക് കൈമാറിയിരുന്നു ധാരാവിയ്ക്ക് പുറമേ മൻവദർ ഉൻഝ ഹൽവദ് ധന്ത്ര എന്നീ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് എം എൽ എ മാരും രാജിവച്ച് ബിജെപിയിൽ ചേർന്നെന്ന് ആകാശവാണി പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു ജസ്ദനിൽ നിന്നുള്ള എം

കുൻവർജി ബവാലിയ കഴിഞ്ഞ വർഷം ബിജെപിയിൽ ചേർന്നിരുന്നു അതേസമയം പട്ട്യേദാർ സമുദായ നേതാവ് ഹാർദിക് പട്ടേൽ കോൺഗ്രസിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചിട്ടു ് ജാംനഗറിൽ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും അതേസമയം മഹാരാഷ്ട്ര നിയമസഭ പ്രതിപക്ഷ നേതാവിന്റെ മകൻ സുജയ് വികെ പാട്ടിൽ കോൺഗ്രസിന് തിരിച്ചടി നൽകികൊ ് ബിജെപിയിൽ ചേർന്നു മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ശ്രീ സുജയ് ബിജെപി അംഗത്വമെടുത്തത് തൃണമൂൽ കോൺഗ്രസ്സിൽ നിന്നും പുറത്തായ എം

അസിഫാബാദ് പിനപക മണ്ഡലങ്ങളിൽ നിന്നുള്ള ക്ടോൺഗ്രസ് എം എൽഎ മാരായ അത്രംസക്കു ആർ കാന്തറാവു എന്നിവ്ർ പാർട്ടി വിട്ട് തെലങ്കാന രാഷ്ട്രസമിതിയിൽ ചേർന്നു ് നക്രേക്കൽ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ

ബംഗ്ലാദേശിൽ നിന്നുള്ള യുവ പാർലമെന്റംഗങ്ങളും രാഷ്ട്രീയ രാഷ്ട്രപതി നേതാക്കളും ഭവനിൽ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഇന്ത്യയും ബംഗ്ലാദേശും ഒരേതരം വെല്ലുവിളികളാണ് നേരിടുന്നതെന്ന് ശ്രീ രാംനാഥ് കോവിന്ദ് പറഞ്ഞു ചരിത്രപരവും സാംസ്കാരികവും കുടുംബങ്ങൾ തമ്മിലും ഇരു രാജ്യങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നു വെന്നും രാഷ്ട്രപതി പറഞ്ഞു

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി നാളെ കേരളത്തിൽ എത്തുന്നതോടെ ഔദ്യോഗിക പ്രചരണത്തിന് തുടക്കമാകും

അതേസമയം വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടി ആർ മീണ ത്തിരുവനന്തപുരത്ത് നാളെ ചർച്ച നടത്തും

ആസൂത്രണം ചെയ്യാതെ കുടിയേറ്റക്കാരുടെ സമ്മതമില്ലാതെയുള്ള മാറ്റിപാർപ്പിക്കൽ രാജ്യത്ത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടി്ക്കുമെന്നും അവർ വൃക്തമാക്കി ഇടയ്ക്കിടെ വെള്ളപൊക്കമു വാകുന്ന ദാസൻ ചാറിൽ റോഹിംഗൃകൾ അകപ്പെട്ടു പോകുമെന്നും ജീവിത സാഹചര്യങ്ങൾ അവിടെ കുറവാണെന്നും റോഹിംഗ്യൻ വക്താക്കൾ പറഞ്ഞു

പുൽവാമ ഭീകരാക്രമണ്ത്ത്പ്പറ്റിയും ഇരു നേതാക്കളും ചർച്ച നടത്തി

ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെയും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്കൽ പോംപിയോയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഇങ്ങനെ അഭിപ്രായമുയർന്നത്

ഭീകരണപ്രവർത്തനത്തിൽ ഇന്ത്യയ്ക്കുള്ള ഉത്കണ്ഠ ശ്രീ വിജയ് ഗോഖലെ പോംപിയോയുമായി പങ്കുവച്ചു

സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ സ്ത്രീകളെ പ്രലോഭിപ്പിച്ച് വശത്താക്കിയിരുന്നത്

കൂടുതൽ അന്വേഷണത്തിനായി കേസ് കുറ്റാന്വേഷണ വിഭാഗത്തിന് കൈമാറി

സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഡയറക്റ്റേറ്റ് അന്വേഷണം നടത്തിയത് ഹുറിയത്ത് നേതാക്കൾക്ക സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിൽ ഏർപ്പെട്ടിരുന്ന വൃക്തിയാണ് സഹൂദ് അഹമ്മദ് ഷാ വട്ടാലി എന്ന് ഏജൻസി വ്യക്തമാക്കി